ശിശുദിനം

നുതന ആവിഷ്ക്കാരങ്ങളിലുള്ള വിശ്വാസത്തിന്റെയും ഭാവനാശേഷിയുടെ ഊർജ്ജത്തിന്റെയും ആഘോഷമാണ് അഭിപ്രായപ്പെട്ടു

കൂടുതൽ വിവരങ്ങളുമായി വിനോദ്കുമാർ

മുൻപുണ്ടായിട്ടില്ലാത്ത തോതിലുമുള്ള വികസനത്തിനാണ് വേഗത്തിലും ഫിൻടെക്കിലൂടെയും ഗവൺമെന്റ് ഡിജിറ്റൽ കണക്റ്റിവിറ്റിയിലൂടെയും തുടക്കമിട്ടിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു പിന്നീട് ശ്രീ മോദി സിംഗപ്പൂർ ഉപപ്രധാനമന്ത്രി ടി ഷൺമുഖരത്നത്തോടൊപ്പം ആപ്പിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫെയ്സ് എക്സ്ചേഞ്ച് എപിക്സ് ഉദ്ഘാടനം ചെയ്തു

നിർദ്ദിഷ്ട് സ്പത്ന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ഉടമ്പടിയുടെട്ടു പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്ന പ്രൊദേശിക സമഗ്ര സാമ്പത്തിക സഹകരണത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും പതിമൂന്നാം കിഴക്കനേഷ്യൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനാണ് പ്രധാനമന്ത്രി സിംഗപ്പൂരിലെത്തിയത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഐ എസ് ആർ ഒയുടെ പേടകം ജി എസ് എൽ

എസ് എൽ വി കുതിച്ചുയരുമെന്ന് ഐ എസ് ആർ

എസ് എൽ

എസ് എൽ

മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒ പി റാവത്തിന്റെ നേതൃത്തിലുള്ള സംഘം മധ്യപ്രദേശിൽ എത്തി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തി ക്രമീകരണങ്ങളിൽ തെരഞ്ഞെടുപ്പ് സംഘം തൃപ്തി രേഖപ്പെടുത്തിയതായി ആകാശവാണി ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു

ബിജാപൂരിലെ ബസ്താർ മേഖലയിൽ ഇന്ന് ്പുലർച്ചെയായിരുന്നു സ്ഫോടനം

തെരഞ്ഞെടുപ്പ് ജോലി കഴിഞ്ഞി വന്ന ബി എസ് എഫ് സംഘം സഞ്ചരിച്ചിരുന്ന ട്രക്കിനെ ലക്ഷ്യമാക്കിയായിരുന്നു സ്ഫോടനം നടന്നത്

ഇവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

സുപ്രീംകോടതി ജനുവരി പുനപരിശോധനാ ഹർജികൾ തുറന്ന കോടതിയിൽ വാദം കേൾക്കാനാണ് പരമോന്നത കോടതിയുട്ടെ തീരുമാനം

തമിഴ്നാടിന്റെ വടക്കൻ തീരങ്ങളിലും പുതുച്ചേരിയിലും അനുബന്ധ പ്രദേശങ്ങളിലും ഇന്ന് വൈകുന്നേരത്തോടെ ശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതായും കാലാവസ്ഥാ നിരീക്ഷണവൃത്തങ്ങൾ അറിയിച്ചു ചുഴലിക്കാറ്റിനെ തുടർന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്

രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി അദ്ദേഹം അനുഷ്ഠിച്ച ത്യാഗവും പ്രധാനമന്ത്രിയെന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളും നിസ്തുലമാണെന്ന് ശ്രീ മോദി ട്വിറ്ററിൽ കുറിച്ചു മുൻ പ്രധാനമന്ത്രി ഡോ

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വം രാജ്യത്തിന്റെ തന്നെ മാറ്റിമറിച്ചെന്ന് സമ്മേളനത്തെ മുഖച്ചായ അഭിസംബോധന ചെയ്യവെ ത്രിപുര മുഖ്യമന്ത്രി പറഞ്ഞു

ബിഹാറിൽ പൂജകൾക്കായി ഭക്തർ ഗംഗ കോസി ഗന്ദക് സോനെ നദീതീരങ്ങളിൽ പുലർച്ചെ തന്നെ ഒത്തുകൂടി ഔറംഗബാദിലെ ദിയോ നളന്ദയിലെ ബഡ്ഗാവ് പാറ്റ്നയിലെ ഉലാർ എന്നീ സുര്യക്ഷേത്രങ്ങളിൽ പ്രാർത്ഥനകൾക്കായി അനേകം ഭക്തർ എത്തിയിരുന്നു

രാജപക്സെയെ പിന്തുണയ്ക്കുന്ന എം പിമാരുടെ പ്രതിഷേധത്തിനിടയിലാണ് അവിശ്വാസ പ്രമേയം പാസാക്കിയത് റെനിൽ വിക്രമസിംഗെ തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ അവകാശപ്പെടുമ്പോൾ നടന്നതെല്ലാം നിയമവിരുദ്ധമായ കാര്യങ്ങളാണെന്ന് രാജപക്സെ പക്ഷം ആരോപിച്ചു സ്പീക്കർ പക്ഷപാതം കാണിക്കുന്നുവെന്നും പ്രസിഡന്റ് ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു

ഇന്ന് ഉച്ചതിരിഞ്ഞ് ചേരുന്ന ബ്രിട്ടീഷ് മന്ത്രിസഭയുടെ അടിയന്തരയോഗം കരട് രൂപരേഖ പരിശോധിക്കും തുടർ നടപടികൾ തീരുമാനിക്കുന്നതിന് എത്തിയിട്ടുണ്ടെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേയുടെ ഓഫീസ് വൃത്തങ്ങൾ അറിയിച്ചു

കിഡംബി ശ്രീകാന്ത് സൈന നെഹ്വാൾ എച്ച് എസ് പ്രണോയ് പരുപ്പള്ളി കശ്യപ് എന്നിവരും ആദ്യറൌണ്ട് മത്സരങ്ങൾക്കായി ഇന്നിറങ്ങും

പുരുഷ വനിതാ ഡബിൾസിലും ഇന്ത്യൻ പ്രാതിനിധ്യം ഉണ്ടാകും

കസ്റ്റംസ് മേഖലയെ കാലോചിതമായി പരിഷ്കരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും ക്യോട്ടോ ഉടമ്പടി ഇ കോമേഴ്സ് ഡിജിറ്റൽ കസ്റ്റംസ് തുടങ്ങിയവയും ചർച്ചാവിഷയമാകും

വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലിനെതിരായി ഭീകരപ്രവർത്തനം നടത്താൻ ജവദ് നസ്റള്ള അടുത്തിടെ ഭീകരരെ റിക്രൂട്ട് ചെയ്തതായി അറിവുണ്ടെന്ന് യു എസ് ആഭ്യന്തര മന്ത്രാലയ വക്താവ് വാഷിംഗ്ടണിൽ പറഞ്ഞു